ടീമിന് പ്രധാനമന്ത്രിയുടെ അനുമോദനം

വാർത്തകൾ വിശദമായി ഇന്നു തിരുവോണം നന്മയുടേയും ഐശ്വര്യത്തിന്റേയും നിറ സ്മരണയുമായാണ് മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നത് കേരളത്തിന്റെ വിളവെടുപ്പുത്സവം കൂടിയാണ് ഓണം കോവിഡ് സാഹചര്യത്തിൽ മലയാളിക്കിത് ജാഗ്രതയുടെ ഓണക്കാലമാണ് ആഘോഷങ്ങളിലും ചടങ്ങുകളിലും നിയന്ത്രണം പാലിച്ച് ഏറെ കരുതലോടെയാണ് ഇത്തവണ ഓണത്തെ വരവേൽക്കുന്നത് മിതത്വവും കരുതലും വിപണികളിലും ദൃശ്യമായിരുന്നു

കള്ളവും ചതിയും കള്ളനാഴിയും പറയുമില്ലാത്ത മാനവരെല്ലാം ഒരു പോലെ ജീവിച്ച സമ്പദ് സമൃദ്ധമായ മാവേലിയുടെ ഭരണകാലത്തെ ഓർത്തെടുക്കുന്ന ദിനം ജാതിയോ മതമോ കുലമോ നോക്കാതെ ഇത്രമേൽ സ്വീകാര്യത നേടിയ ജനകീയോത്സവം മറ്റൊന്നില്ല മലയാളത്തിന്റെ വസന്തോത്സവം തന്നെയാണ് ഓണം കർക്കിടക പെരുമഴയ്ക്ക് തെല്ലുശമനമാകുന്ന കാലം തൊടിയിലെ മുക്കുറ്റിയും തുമ്പയും മുതൽ പേരറിയാച്ചെടികൾ വരെ പൂത്തു നിറയുന്ന വേള പുൽക്കൊടിത്തുമ്പിലെ മഞ്ഞുതുള്ളിയ്ക്ക് പോലുമുണ്ട് ഒരു സ്വർണത്തിളക്കം ഓണം ഓർമ്മയാണ് ഓർമ്മപ്പെടുത്തലാണ് കൊറോണ മഹാമാരി ദേശഭേദമില്ലാതെ ഭീതിപരത്തുന്ന വേളയിൽ കടന്നുവന്ന തിരുവോണം ആഘോഷങ്ങളെ വീടിന്റെ അകത്തളത്തിലേക്ക് മാറ്റി ഓണാഘോഷങ്ങളുടെ പൊലിമക്കുമേൽ കരിമ്പടം പുതച്ചു എന്നിട്ടും പൂക്കളം ഒരുക്കി പ്രതീക്ഷയോടെ മലയാളി കാത്തിരിക്കുകയാണ്

രുര രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ഓണാശംസ നേർന്നു രാജ്യത്തെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ സമയത്ത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ പരിഗണിക്കണമെന്നും കുടുംബങ്ങളേയും സമൂഹത്തേയും സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു മഹാബലിയുടെ ഓർമകൾക്ക് ആദരമർപ്പിച്ചാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി എം

കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ച് വീടുകളിൽ ഓണം ആഘോഷിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു രുഭ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കരുതലോടെ വേണമെന്ന് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻകീ ബാതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഓണം അന്താരാഷ്ട്ര ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

ഈ ഓണക്കാലത്ത് എല്ലാ ഭവനവും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് അനുഗൃഹീതമാകട്ടെയെന്ന് ഗവർണർ പറഞ്ഞു ഓണപ്പാട്ടിന്റെ ഈണവും സമ്പൽസമൃദ്ധിയുടെ തിളക്കവും ഓരോ മനസ്സിലും ഉത്സവത്തിന്റെ സ്വർഗീയാനന്ദം പകരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു

അതുകൊണ്ടുതന്നെ അസാധാരണമാം വിധം മ്ലാനമായ ഈ അന്തരീക്ഷത്തെ മുറിച്ചുകടക്കാൻ നമുക്കു കഴിയുക തന്നെ ചെയ്യും എന്ന പ്രത്യാശ പടർത്തിക്കൊണ്ടാവണം ഇത്തവണത്തെ ഓണാഘോഷമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേദ ദീപാവലിയോടെ കോവിഡ്ബാധ കാര്യമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

അനന്ത്കുമാർ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച വെബിനാർ സീരീസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

സംസ്ഥാനത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം അരലക്ഷത്തോട് അടുക്കുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി ഹബീബ് റഹ്മാൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിക്കുന്ന സംരക്ഷിത കുടുംബ കൂട്ടായ്മയിലൂടെ സമ്പർക്കം വഴിയുണ്ടാകുന്ന രോഗവ്യാപനം ചെറുക്കാനാകുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു ഇതു സംബന്ധിച്ച പ്രവർത്തനങ്ങളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ മീറ്റ് വഴി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ടീം ചെസ് ഒളിംപ്യാഡിൽ ജേതാക്കളാകുന്നത്

ഇതിനെതിരെ ഇന്ത്യ നൽകിയ അപ്പീലിലാണ് ഫിഡെ പ്രസിഡന്റ് അർക്കാഡി ഡോർക്കോവിച്ച് ഇരു ടീമുകൾക്കും സ്വർണ മെഡൽ നൽകാൻ തീരുമാനിച്ചത്

രണ്ടാം പാദ മത്സരത്തിൽ അഞ്ചാം ബോർഡിൽ മലയാളിയായ നിഹാൽ സരിനും ആറാം ബോർഡിൽ ദിവ്യ ദേഷ്മുഖും കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സെർവർ തകരാറ് മൂലം കളി മുടങ്ങിയത്

ഇവരുടെ കഠിനാധ്വാനവും സമർപ്പണവും പ്രശംസനീയമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു മറ്റു ചെസ് കളിക്കാർക്കും ഇവരുടെ കിരീട നേട്ടം പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജുവും ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു രമേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്തമാസം പത്തു മുതൽ പ്രതിദിനം ആയിരം പേർക്ക് ദർശനത്തിന് അനുമതി നൽകാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു

കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മുൻകൂർ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് അനുവദിച്ച സമയക്രമ പ്രകാരമായിരിക്കും ദർശനം അനുവദിക്കുക

ഇന്നു മുതൽ വാഹന പൂജയും ഏർപ്പെടുത്തും രുദ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ രണ്ട് ഡി

വെമ്പായം തേവലക്കാട് സ്വദേശി മിദ്ലാജ് തേമ്പാൻമൂട് കലുങ്കിൻമുഖം സ്വദേശി ഹഖ് മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്

മൂന്നു പേരെയും അക്രമികൾ എത്തിയ ബൈക്കും പൊലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകത്തിനു പിന്നിൽ കോൺഗ്രസാണെന്ന് സി

രേര തിരുവനന്തപുരത്ത് സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അനു എസ് എന്ന ഉദ്യോഗാർത്ഥി തൊഴിൽ ലഭിക്കാത്തതിനാൽ ആത്മഹത്യ ഖേദകരമാണെന്ന് പി

രുമ യുവാക്കളെ വഞ്ചിക്കുന്ന ഗവൺമെന്റ് നടപടിയിലും പി എസ് സി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെ തുടർന്ന് അനുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിലും പ്രതിഷേധിച്ച് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവോണ നാളായ ഇന്ന് കെ

സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉപവസിക്കും

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി തുടങ്ങിയവർ പങ്കെടുക്കും രെര യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സി

പി സംസ്ഥാന അധ്യക്ഷൻ കെ

യുവാക്കളെ വഞ്ചിച്ചും അവരോട് യുദ്ധം പ്രഖ്യാപിച്ചും സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് യുവമോർച്ച ആരോപിച്ചു രുമ ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഉദ്യോഗാർത്ഥികളോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി

ഉദ്യോഗാർത്ഥികളോട് ഇടത് നിഷേധാത്മക നിലപാടുകൾക്കെതിരെ ഇന്ന് മണ്ഡലംതലത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു

എസ് സി ചെയർമാനെ തൽസ്ഥാത്ത് നിന്നും നീക്കി പ്രോസിക്യൂഷന് വിധേയമാക്കണമെന്ന് എൻ

പ്രേമചന്ദ്രൻ എം

സി റാങ്ക് ലിസ്റ്റിൽ പേരു വന്നിട്ടും ജോലി നിഷേധിച്ചതിന്റെ പേരിൽ മനംനൊന്തു യുവാവ് ആത്മഹത്യ ചെയ്തതിന്റെ ഉത്തരവാദിത്വം പി എസ്